വാർത്തകൾ വിശദമായി കോവിഡ് രണ്ടാം തരംഗത്തെ അതിജീവിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കുന്ന നടപടികൾ വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു പ്രതിരോധത്തിൽ കേന്ദ്രവുമായി കോവിഡ് കേരളം സഹകരിക്കുന്നുണ്ടെന്ന കാര്യം മുഖ്യമന്ത്രി കത്തിൽ വ്യക്തമാക്കി കേരളത്തിന് പുറത്ത് റെംഡെസിവിർ ആവശ്യമായ ഇടങ്ങളിൽ മരുന്ന് എത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു അടുത്ത ശനിയാഴ്ചയോടെ സംസ്ഥാനത്തെ സജീവ കോവിഡ് കേസുകൾ ആറുലക്ഷമായി ഉയർന്നേക്കുമെന്നും ഈ ഘട്ടത്തിൽ ആവശ്യമായ ഓക്സിജൻ ഉറപ്പ് വരുത്താൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളമടക്കം സംസ്ഥാനങ്ങളിലേക്കും ഓക്സിജൻ എക്സ്പ്രസ് ട്രെയിനുകൾ ഓടിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യം ഉന്നയിച്ചു രുഭ കോവിഡ് രണ്ടാം തരംഗം സമൂഹത്തിലുണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദത്തിന്റെ തീവ്രത കുറയ്ക്കാൻ ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട് എന്ന സൈക്കോ സോഷ്യൽ പരിപാടി കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഓരോ ജില്ലയിലെയും മാനസികാരോഗ്യ പരിപാടി സംഘാംഗങ്ങളുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് കോവിഡ് ബാധിതർക്കു പുറമെ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നവർ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾ വയോജനങ്ങൾ തുടങ്ങിയവരെ പദ്ധതിയിലൂടെ സഹായിക്കും

പത്തരയ്ക്ക് തിരുവനന്തപുരത്താണ് യോഗം രും അത്യാവശ്യഘട്ടങ്ങളിലെ യാത്രയ്ക്ക് അനുവാദം തേടി പൊലീസിന്റെ ഓൺലൈൻ ഇ പാസിന് അപേക്ഷിച്ചവരുടെ എണ്ണം മൂന്ന് ലക്ഷം കവിഞ്ഞു

രണ്ട് ലക്ഷത്തിലേറെ അപേക്ഷകൾ തള്ളി

രും സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഇന്നലെ കുറവ് രേഖപ്പെടുത്തി

എറണാകുളവും കോഴിക്കോടുമടക്കം ജില്ലകളിൽ ഇതിൽ താഴെയാണ് പുതിയ രോഗികളുടെ എണ്ണം

ഇന്ത്യയിൽ ഇതുവരെ ഒന്നരക്കോടിയിലേറെ ആരോഗ്യ പ്രവർത്തകർ വാക്സിനെടുത്തു രംഭ കോവിഡ് രോഗികൾക്കും രോഗലക്ഷണം കാണിക്കുന്ന വർക്കും ആശങ്കയകറ്റാൻ കോഴിക്കോട് ജില്ലയിൽ ടെലി മെഡിസിൻ സംവിധാനം തുടങ്ങി ആശുപത്രിയിൽ പോകാതെ രോഗികൾക്ക് ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട് ടെലി മെഡിസിൻ വഴി ചികിത്സ തേടാം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ജില്ലാ പഞ്ചായത്ത് മൂന്നുകോടി രൂപയുടെ പദ്ധതികൾക്ക് അനുമതി നൽകി രുര കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ കണ്ടെയിൻമെന്റ് സോണുകളിൽ നാളെയും മറ്റന്നാളും ആഘോഷങ്ങളുടെ ഭാഗമായി മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നതും മാംസം വിതരണം ചെയ്യുന്നതും കർശനമായി നിരോധിച്ചു മറ്റുസ്ഥലങ്ങളിൽ കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ച് മൃഗങ്ങളെ അറക്കുന്നതിനും വീടുകളിൽ മാംസം എത്തിച്ചു നൽകുന്നതിനും തടസ്സമില്ലെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്ന സ്ഥലത്ത് മാംസ വിതരണം പാടില്ലെന്നും നിർദേശമുണ്ട്

രുര പെരുന്നാൾ വിഭവങ്ങൾക്കാവശ്യമായ സാധനങ്ങൾ വീടുകളിലെത്തിക്കാൻ കഴിയുന്ന വിധം ഹോം ഡെലിവറി സംവിധാനമൊരുക്കാൻ കണ്ണൂർ ജില്ലയിലെ തദ്ദേശ സ്ഥാപന ങ്ങൾക്ക് കലക്ടർ നിർദേശം നൽകി സന്നദ്ധ പ്രവർത്തകർ സഹകരണ സ്ഥാപനങ്ങൾ കുടുംബശ്രീ അടക്കം സംഘടനകൾ എന്നിവരെ ഹോം ഡെലിവറിയിൽ ഉൾപ്പെടുത്തണമെന്ന് കലക്ടർ ആവശ്യപ്പെട്ടു രംഭ കണ്ണൂർ ജില്ലയിൽ ഇന്ന് കോവിഡ് വാക്സിനേഷൻ രണ്ടാം ഡോസ് മാത്രമായിരിക്കും വിതരണം ചെയ്യുകയെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു

ഓൺലൈൻ രജിസ്ട്രേഷൻ ഉണ്ടാകില്ല രും ഇടുക്കി ജില്ലയിൽ കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ നേരിയ കുറവ് വരുന്നുണ്ടെന്നും മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറവാണെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു വരും ദിവസങ്ങളിലും കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നും ലോക്ഡൌണിനോട് സഹകരിക്കണമെന്നും കലക്ടർ അഭ്യർത്ഥിച്ചു അനാവശ്യമായി പുറത്തിറങ്ങുന്നവർക്കെതിരെ കേസെടുക്കു മെന്നും വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നതടക്കം ശക്തമായ നിയമ നടപടിയെടുക്കുമെന്നും ജില്ലാ പൊലീസ് മേധാവി അറിയിച്ചു

ഇവർക്ക് രണ്ടുദിവസത്തെ പരിശീലനം നൽകി

പൂക്കോട് കുടുംബാരോഗ്യ കേന്ദ്രവും ഗുരുവായൂർ നഗരസഭയും സംയുക്തമായി ഇവർക്ക് ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ താമസ സൌകര്യം ഒരുക്കി രും ലോക്ക് ഡൌൺ കാലത്ത് തൊഴിലുടമകളുടെ സഹായം ലഭിക്കാത്ത കൊല്ലം നഗരത്തിലെ അതിഥി തൊഴിലാളികൾക്ക് തൊഴിൽ സിവിൽ സപ്ലൈസ് വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യക്കിറ്റ് വീട്ടുപടിക്കൽ എത്തിച്ചു നൽകി കിറ്റുകൾ നിറച്ച വാഹനം കലക്ട്രേറ്റ് അങ്കണത്തിൽ ജില്ലാ കലക്ടർ ബി

വിവിധ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധരിപ്പിക്കുന്ന സന്ദേശങ്ങൾ പ്രചരിക്കുന്നതായി കേന്ദ്ര കമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയം അറിയിച്ചു ഇതിന് ശാസ്ത്രീയമായ അടിത്തറയില്ലെന്നും വസ്തുതാ വിരുദ്ധമാണെന്നും ഗവൺമെന്റ് വിശദീകരിച്ചു

ദേശീയ അവാർഡ് അടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്

മനു അങ്കിൾ എന്ന ചിത്രം മികച്ച ബാലചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടി

നിറക്കൂട്ട് എന്ന ചിത്രത്തിന് ലഭിച്ച ജനസ്വീകാര്യത അദ്ദേഹത്തെ തിരക്കഥാ രംഗത്തെ പ്രമുഖരിൽ ഒരാളാക്കി

സംസ്കാരം ഉച്ചകഴിഞ്ഞ് മൂന്നിന് പേരൂർ ചെറുവാണ്ടൂർ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിസെമിത്തേരിയിൽ നടത്തും രംഭ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ തുടങ്ങിയവർ ഡെന്നിസ് ജോസഫിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു രമേ പ്രശസ്ത സിനിമാ നിർമ്മാതാവ് കെ എസ് രാമമൂർത്തി കോയമ്പത്തൂരിൽ അന്തരിച്ചു

കമൽഹാസന്റെ ആദ്യ മലയാള ചിത്രം കന്യാകുമാരി ഉൾപ്പെടെ പ്രശസ്തമായ നിരവധി ചിത്രങ്ങളുടെ നിർമ്മാതാവായിരുന്നു രംഭ ഇസ്ലാം മത വിശ്വാസികളുടെ റംസാൻ നോമ്പ് അവസാന ദിവസങ്ങളിലേക്ക് ഒരു മാസം നീണ്ട വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശവ്വാൽ മാസപ്പിറവിയോടെ സമാപനമാകും ഇന്ന് മാസപ്പിറവി കാണാൻ സാധ്യതയുണ്ടെന്നും പിറവി ദർശിക്കുന്നവർ വിവരമറിയിക്കണമെന്നും പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളും കോഴിക്കോട് ഖാസിമാരും ആവശ്യപ്പെട്ടു രംഭ ഇന്ധനവില ഇന്നും വർധിച്ചു

രംഭ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ശ്രീലങ്കൻ പര്യടനം ജൂലൈയിൽ നടക്കും